ത കോവിഡിനെതിരായ നീണ്ട പോരാട്ടത്തിന്റെ വിജയത്തുടക്കമാണ് ജനതാ കർഫ്യൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത സംസ്ഥാനത്ത് ഇന്ന് അവശ്യ സാധനങ്ങൾ കിട്ടുന്ന കടകൾ തുറന്ന് പ്രവർത്തിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

കാസർകോട് അഞ്ചും കണ്ണൂരിൽ നാലും കോഴിക്കോട് മലപ്പുറം എറണാകുളം ജില്ലകളിൽ രണ്ടു പേർക്കും വീതമാണ് രോഗം സ്ഥിരീകരിച്ചതെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു

ഇതോടെ സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ച ജില്ലകളുടെ എണ്ണം പത്തായി

പത്തനംതിട്ടയിൽ ഒമ്പതും തിരുവനന്തപുരം മലപ്പുറം ജില്ലകളിൽ നാലു വീതവും കോട്ടയത്തും കോഴിക്കോടും രണ്ടുവീതവും തൃശൂരിലും ഇടുക്കിയിലും ഓരോരുത്തരുമാണ് ചികിത്സയിൽ കഴിയുന്നത്

കൂടുതൽ പേരിലേക്ക് രോഗം പടരാതിരിക്കാൻ അതീവ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യവകുപ്പിന്റെ നിർദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു ദരദ കാസർകോട് ജില്ലയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി ജഗന്നിവാസൻ വെള്ളിക്കോത്ത്

ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന അടിയന്തര സാഹചര്യം നേരിടുന്നതിന് വിപുലമായ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് കൂടുതൽ സെന്ററുകൾ ഒരുക്കുന്നത് ദേഴ കോഴിക്കോട് ജില്ലയിൽ സി

ജില്ലയിലെ പൊതുസ്ഥലം ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും അഞ്ചിൽ കൂടുതൽ പേർ കൂട്ടംകൂടുന്നതിനും ഉത്സവങ്ങൾ മതാചാരങ്ങൾ ചടങ്ങുകൾ വിരുന്നുകൾ എന്നിവയിൽ പത്തിലധികം പേർ പങ്കെടുക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തി

ദേദ ജില്ലയിൽ കോവിഡ് ബാധ സ്ഥിരീകരിച്ച നാലുപേരുടെയും ആരോഗ്യനില തൃപ്തികരമായി തുടരുന്നു

ദേദ മലപ്പുറം ജില്ലയിൽ കൂടുതൽപേർ ഒരുമിച്ചു കൂടുന്ന സാഹചര്യം പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ജില്ലാ കലക്ടർ ജാഫർ മാലിക് അറിയിച്ചു ആരാധനാലയങ്ങളിൽ ജാഗ്രതാ നിർദേശങ്ങൾ ലംഘിച്ച് കൂടുതൽപേർ ഒത്തുചേരുന്നത് കർശനമായി നിയന്ത്രിക്കും ആരാധനാലയങ്ങളിൽ നിർദേശങ്ങൾ ലംഘിച്ച് കൂടുതൽ ആളുകൾ ഒരേ സമയം ഒരുമിച്ചു ചേരുന്നുണ്ടോയെന്ന് പൊലീസ് നിരീക്ഷിക്കുമെന്നും വീഴ്ച വരുത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ പൊലീസ് മേധാവി യു അബ്ദുൽ കരീം അറിയിച്ചു

രണ്ടു പേരും നെടുമ്പാശേരി വിമാനത്താവളം വഴിയാണ് എത്തിയത് അതിനിടെ എറണാകുളം മെഡിക്കൽ കോളജ് ജില്ലയിലെ കോവിഡ് ചികിത്സ കേന്ദ്രമായി പ്രവർത്തിക്കും

ദേദ കോഴിക്കോട്ട് മൂന്നുപേർക്കെതിരെ കേസെടുത്തു ഇവരോട് വീട്ടിൽ നിരീക്ഷണത്തിൽ ഇരിക്കാൻ കർശന നിർദ്ദേശം നൽകി

അവശ്യ സേവനങ്ങൾ ഒഴികെ ബാക്കി എല്ലാ സേവനങ്ങളും നിർത്തിവെക്കാനാണ് നിർദേശം നൽകിയതെന്ന് ആഭ്യന്തര മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി ലാവ് അഗർവാൾ ന്യൂഡൽഹിയിൽ പറഞ്ഞു കേരളത്തിൽ പത്ത് ജില്ലകളിൽ ലോക്ക്ഡൌൺ ഏർപ്പെടുത്താനാണ് നിർദേശം ആലപ്പുഴ എറണാകുളം ഇടുക്കി കണ്ണൂർ കാസർകോട് കോട്ടയം മലപ്പുറം പത്തനംതിട്ട തിരുവനന്തപുരം തൃശൂർ എന്നിവയാണ് ഈ ജില്ലകൾ ഇതു സംബന്ധിച്ച സംസ്ഥാന ഗവ തീരുമാനം ഇന്നുണ്ടായേക്കും ദേഴ കോവിഡ് ബാധ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കേരളം പൂർണ്ണമായി ഷട്ട് ഡൌണിലേക്ക് പോകുന്ന കാര്യം ഗൌരവമായി ആലോചിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു വൈറസ് ബാധ രൂക്ഷമായ ഡൽഹി പഞ്ചാബ് രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഷട്ട് ഡൌണിലേക്ക് പോവുകയാണ്

ഐയും ആരോഗ്യ രംഗത്തെ വിദഗ്ധരും പറയുന്നത് പൂർണ്ണമായ ഷട്ട് ഡൌൺ അനിവാര്യമാണെന്നാണ്

ഡൽഹിയിലും മഹാരാഷ്ട്രയിലും നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ദേദ കോവിഡിന് എതിരായ നീണ്ട പോരാട്ടത്തിന്റെ വിജയത്തുടക്കമാണ് ജനതാ കർഫ്യൂവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പറഞ്ഞു ഏത് വെല്ലുവിളിയും ഒരുമിച്ച് നേരിടാൻ രാജ്യം സജ്ജമാണെന്നാണ് കർഫ്യൂ ആചരണത്തിലൂടെ ജനം പ്രഖ്യാപിച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കോവിഡ് നിയന്ത്രണത്തിനായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ പുറപ്പെടുവിക്കുന്ന നിർദേശങ്ങൾ പാലിക്കണമെന്ന് അദ്ദേഹം ട്വിറ്ററിലൂടെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു അടച്ചുപൂട്ടൽ പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ ആളുകൾ വീടുകളിൽ തന്നെ കഴിയണമെന്നും അടിയന്തര സാഹചര്യങ്ങളിൽ അല്ലാതെ പുറത്തിറങ്ങരുതെന്നും പ്രധാനമന്ത്രി ഓർമിപ്പിച്ചു

കോവിഡ് എന്ന മഹാമാരിയെ പ്രതിരോധിക്കാൻ ദൃഢനിശ്ചയമാണ് വീട്ടിൽ ഇരുന്ന് കേരളീയർ പ്രകടിപ്പിച്ചതെന്ന് ഗവർണർ പറഞ്ഞു

കാസർകോട് ജില്ലയിൽ നിയന്ത്രണമുണ്ട് മറ്റിടങ്ങളിൽ അവശ്യസാധനങ്ങൾ ലഭിക്കുന്നതിന് തടസ്സമില്ല

കൊവിഡ് നിയന്ത്രണത്തിന്റെ ഭാഗമായി ചില ജില്ലകൾ അടച്ചിടുമെന്ന പ്രചരാണത്തിന്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം ദേദ തിരുവനന്തപുരം ജില്ലയിലെ പാൽ പത്രം വിതരണക്കാർ കൊറോണ പ്രതിരോധത്തിനായി ഗ്ലൌസ് ധരിക്കുകയും ആരോഗ്യ വകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുകയും ചെയ്യണമെന്ന് കളക്ടർ കെ

ദ്ദേ വയനാട്ടിൽ നിന്ന് കെ എസ്

ടിസി സ്വകാര്യ ബസ്സുകൾ മറ്റ് ജില്ലകളിലേക്ക് പോകുന്നതിന് നിയന്ത്രണമുണ്ടാവില്ലെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ നിന്ന് സ്വകാര്യ ബസ്സുകൾ വരുന്നതിനും തടസ്സമുണ്ടാവില്ല